ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹീന്ദ രാജപക്സെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി

സമയ നഷ്ടവും ധനനഷ്ടവും കുറയ്ക്കാൻ നിയമ വൃവഹാരങ്ങൾ ആരംഭിക്കുന്നതിനു് മുൻപ് മധ്യസ്ഥ ചർച്ചകൾ നടത്തണമെന്ന് സുപ്രീംകോടത്തി പ്പീഫ് ജസ്റ്റിസ് എസ്

ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹീന്ദ രാജപക്സെയുമായി ഇന്നലെ നടത്തിയ ചർച്ചയ്ക്കുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമത്പം നീതി സമാധാനം എന്നിവയ്ക്കുവേണ്ടിയുള്ള ശ്രീലങ്കൻ തമിഴരുടെ പ്രതീക്ഷകൾ ശ്രീലങ്കൻ ഗവൺമെന്റ് നിറവേറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാപാരവും നിക്ഷേപവും വർധിപ്പിക്കാൻ തീരുമാനമീട്ടയതായും പ്രധാനമന്ത്രി പറഞ്ഞു

അയൽരാജ്യം ആദ്യമെന്ന ഇന്ത്യൻ നയത്തിന് ശ്രീ

പ്രധാനമന്ത്രി ആയതിനുശേഷമുള്ള ശ്രീ രാജപക്സെയുടെ ആദ്യ ഇന്ത്യൻ സന്ദർശനമാണിത് സന്ദർശനത്തിന്റെ ഭാഗമായി ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഇന്നലെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ സന്ദർശിച്ചു വാരണാസി സാരനാഥ് ബോധ്ഗയാ തിരുപ്പതി എന്നിവിടങ്ങളും അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് വികസനം സുരക്ഷ എന്നീ മേഖലകളിൽ ഇന്ത്യയുടെ പങ്കാളിയാണ് ശ്രീലങ്കയെന്ന് വിദേശകാര്യമന്ത്രി എസ്

മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘവും ശ്രീ രാജപക്സെയെ സന്ദർശിച്ചു

പരസ്പര വിശ്വാസത്തിലും സഹകരണത്തിലും ഊന്നിയുള്ളതാണ് ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള ബന്ധമെന്നും സാംസ്കാരികവും ചരിത്രപരവുമായ അടിത്തറകൾ ഇതിന് സഹായകമാണെന്നും ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്തു

കോടതികളുടെയും വൃവഹാരങ്ങളിൽ ഏർപ്പെടുന്നവരുടെയും സമയം വിലപ്പെട്ടതാണ് കേസുകൾ ആരംഭിക്കുന്നതിന് മുൻപ് മദ്ധ്യസ്ഥ ചർച്ചകളടക്കമുള്ള മറ്റ് മാർഗ്ഗങ്ങൾ തേടുന്നത് ഇരു കക്ഷികളുടെയും വിലപ്പെട്ട സമയം പാഴാവാതിരിക്കാൻ ഉപകരിക്കും ന്യൂഡൽഹിയിൽ ഫിക്കി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

കൈത്തറി ഉത്പന്നങ്ങളാണ് കൂടുതലും കയറ്റുമതി ചെയ്തത്

വ്യോമമാർഗമോ സമുദ്രമാർഗമോ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്നും അറിയിപ്പുണ്ട്

എന്നാൽ വിമാനജീവനക്കാർക്ക് പ്രവേശന നിരോധനം ബാധകമല്ല

അതിനിടെ രാജ്യത്തെ കൊറോണ വൈറസ് പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പ്രീതി സുദന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി ചൈന ഹോങ്കോങ് തായ്ലന്റ് സിംഗപൂർ എന്നീ രാജ്യങ്ങളിൽ നിന്നു വരുന്ന മുഴുവൻ യാത്രക്കാരെയും വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്നുണ്ട്

ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് മൂന്ന് പോസിറ്റീവ് കേസുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇവരെ എയർ ഇന്ത്യ വിമാനങ്ങളിൽ എത്തിക്കാൻ ചൈനീസ് അധികൃതർ അനുമതി നൽകിയിട്ടില്ല

ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചി വളരെ താഴ്ന്ന നിലയിലാണ്

വരും ദിവസങ്ങളിലും ഇത് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചത്

കമാൻഡറെയും മറ്റ് രണ്ട് പേരെയും സൈനിക കൃാംപിൽ വെടിവച്ചശേഷം മോഷ്ടിച്ച കാറിൽ തോക്കുകളും സ്ഫോടകവസ്തുക്കളുമായി തോമ്മ രക്ഷപ്പെടുകയായിരുന്നു

സംഭവത്തെപ്പറ്റി അവ്യക്തത ഉണ്ടെന്നും മനപൂർവ്വം വെടിവച്ചതാണോ അപകടമാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്നും നാൻഗർ പ്രവിശ്യ ഗവർണർ ഷാ മെഹമൂദ് മേയാക്കിൽ പറ്റുണ്ട്രു

സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ഹോക്കി ഹരിയാനയും തമ്മിലാണ് കിരീടപോരാട്ടം മധ്യപ്രദേശ് ഹോക്കി അക്കാദമിയും ഹോക്കിമഹാരാഷ്ട്രയും തമ്മിലാണ് ലൂസേഴ്സ് ഫൈനൽ വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം പ്രതിനിധി നീരജ് ലാൽ